ഭൌതിക ശരീരം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പൊതു ദർശനത്തിന് വെച്ചി രിക്കയാണ് സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ലോധി റോഡ് ശ്മശാനത്തിൽ

വിഷയത്തിൽ പ്രധാ നമന്ത്രി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തേക്കും

ള്ള ൽ അന്തരിച്ച മുൻ വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജിന് രാജ്യത്തിന്റെ ആദരം ഇന്നലെ രാത്രി ഡൽഹിയിൽ അന്തരിച്ച സുഷമ സ്വരാജിന്റെ ഭൌതിക ശരീരം തല സ്ഥാനത്തെ പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചു മുതിർന്ന നേതാ വിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കയാണ് ഉച്ചക ഴിഞ്ഞ് മൂന്നു വരെ പൊതുദർശനത്തിന് വെച്ച ശേഷം ഭൌതിക ശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ലോധി റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും ഡൽഹിയിലും ഹരിയാനയിലും രണ്ട് ദിവസത്തെ ഔദ്യോഗിക ദുഖാചരണം പ്രഖ്യാ പിച്ചിട്ടുണ്ട് രാവിലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം

രാവിലെ വസതിയിലെത്തി യാണ് നേതാക്കൾ ആദരാഞ്ജലി അർപ്പിച്ചത്

പി ദേശീയ വർക്കിങ് പ്രസിഡന്റ് ജെ പി നദ്ദ മുതിർന്ന ബി

പി നേതാവ് എൽ കെ അദ്ധാനി യു പിഎ അധ്യക്ഷ സോണിയാ ഗാന്ധി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാ ലിക്കൂട്ടി തുടങ്ങിയവർ സുഷമ സ്വരാജിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വസതി യിലെത്തിയിരുന്നു രാജ്യത്തിന് പൊതുജീവിതത്തിൽ ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിന്ന വ്യക്തിത്വമാണ് നഷ്ടമായതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ജനങ്ങളെ സഹായിക്കാൻ ജീവിച്ച വ്യക്തി എന്ന നിലയിലാവും ചരിത്രം അവരെ ഓർമ്മി ക്കുകയെന്നും രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തിന് വൻനഷ്ടമാണ് സുഷമയുടെ മരണമെന്ന് ഉപരാഷ്ട്രപതി എം

നല്ല ഭരണാധികാരിയും മികച്ച പാർലമെന്റേറിയനും വാഗ്മിയുമായിരുന്നു സുഷമയെന്നും അദ്ദേഹം ടിറ്ററിൽ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തിളക്കമാർന്ന അധ്യായം അവസാനിച്ചുവെന്ന് പ്രധാന മന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സുഷമയുടെ മരണം വൃക്തിപരമായ നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ബി ജെ പിയുടെ ശക്തമായ ശബ്ദമായിരുന്നു സുഷ മയെന്ന് പാർട്ടി അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ അനുസ്മരിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമാജ് വാദി പാർട്ടി നേതാവ് മുലാ യംസിങ് യാദവ് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബി

പി നേതാവ് മായാവതി ഡൽഹി ഉപ മുഖ്യമന്ത്രി മനീഷ് സിസോഡിയ തൃണ മൂൽ നേതാവ് ഡറിക് ഒബ്രിയൻ യോഗഗുരു രാംദേവ് ബി ജെ പി നേതാവ് ഹേമമാ ലിനി തുടങ്ങിയവരും രാവിലെ തന്നെ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചവ രിൽ ഉൾപ്പെടുന്നു രാജ്യസഭയിൽ സഭാധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു സുഷമ സ്വരാജിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ചരമോപചാരം അവതരിപ്പിച്ചു തുടർന്ന് സഭ അനി ശ്ചിത കാലത്തേക്ക് പിരിഞ്ഞു

പാർല മെന്റിന്റെ ഇരുസഭകളും ഇതു സംബന്ധിച്ച പ്രമേയം പാസ്സാക്കിയതിനെ തുടർന്നാ ണ് രാഷ്ട്രപതിയുടെ നടപടി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തേക്കും കശ്മീർ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ വിശദീകരിക്കാ നാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത് ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദു ചെയ്ത കേന്ദ്ര ഗവൺമെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് സംസ്ഥാനത്ത് ഏരിയ കേന്ദ്രങ്ങളിൽ വൈകീട്ട് പ്രതി ഷേധ പരിപാടികൾ സംഘടിപ്പിക്കും

ശ്രീറാം വെങ്കിട്ടരാമന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും

ഇന്നലെ ജാമ്യം അനുവദിച്ച ചീഫ് ജുഡീ ഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ കേസിൽ ജാമ്യം നൽകാൻ അധികാരമില്ലെന്ന് കാണിച്ചാണ് ഗവൺമെന്റ് ഹർജി നൽകുന്നത് പത്ത് വർഷം വരെ തടവു ശിക്ഷ വരെ ലഭിക്കാവുന്ന കേസാണ് ഇതെന്നും മൂന്ന് വർഷം വരെ തടവു ലഭിക്കാവുന്ന കേസുകളാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിയെന്നും ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിക്കും അതിനിടെ ശ്രീരാം വെങ്കിട്ടരാമൻ തൽകാലം തിരുവനന്തപുരം മെഡിക്കൽ കോള ജിലെ ട്രോമ ഐ

യുവിൽ തന്നെ തുടരട്ടെയെന്ന് മെഡിക്കൽ ബോർഡ് സംഘം നിർദേശിച്ചു ചില പരിശോധനാ റിപ്പോർട്ടുകൾ കൂടി ലഭിച്ച ശേഷമേ അദ്ദേഹത്തെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് ഡിസ്ചാർജ്ജ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാന മെടുക്കാനാവൂവെന്ന് ബോർഡ് വിലയിരുത്തി റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം വീണ്ടും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് തീരുമാനമെടുക്കും സിറാജ് ദിനപത്രം തിരുവനന്തപുരം യൂനിറ്റ് ചീഫ് കെ എം ബഷീറിന്റെ അപകടമര ണത്തിന് കാരണക്കാരനായ ഐ

എസ് ഉദ്യോഗസ്ഥൻ ശ്രീരാം വെങ്കിട്ടരാമന് ജാമ്യം ലഭിച്ചതു വഴി കേസിലെ അട്ടിമറി കൂടുതൽ വ്യക്തമായെന്ന് പത്രമാനേജ്മെന്റ് മുഖപ്രസംഗത്തിൽ ആരോപിച്ചു ഗുരുതരമായ പഴുതുകൾ ഉണ്ടാക്കിയും തെളിവു കൾ നശിപ്പിച്ചും പൊലീസ് പക്ഷപാതിത്വം കാണിച്ചുവെന്ന് അവർ കുറ്റപ്പെടുത്തി കൊലയാളിക്ക് രക്ഷപ്പെടാൻ പൊലീസ് രാജപാതയൊരുക്കുകയായിരുന്നുവെന്ന് പത്രം പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ടിട്ടും പൊലീസ് സംവിധാനം അവർ നിശ്ചയിച്ച വഴിയേ പോവുകയുണ്ടായതെന്നും മുഖപ്രസംഗത്തിൽ സിറാജ് വിലയി രുത്തി അയോധ്യ ഭൂമി തർക്ക കേസിൽ തുടർച്ചയായ രണ്ടാം ദിവസവും സുപ്രീംകോട തിയിൽ വാദമാരംഭിച്ചു നിർമോഹി അഖാഡയുടെ വാദമാണ് രണ്ടാം ദിവസം തുട ങ്ങിയത്

ഈ സ്ഥലത്തിന്റെ പൂർണമായ നിയന്ത്രണം അഖാഡയ്ക്ക് നൽകണമെന്നാണ് അവരുടെ ആവശ്യം മൂന്നംഗ മധ്യസ്ഥ സമിതിയുടെ ഇടപെടൽ ഫലപ്രദമാകാത്തതിനെ തുടർന്നാണ് ഭൂമി തർക്ക കേസിൽ സുപ്രിംകോടതിയിൽ ഇന്നലെ തുടർച്ചയായ വാദം ആരംഭിച്ചത് ഇടുക്കിയിലെ പട്ടയ് ഭൂമിയിൽ അനധികൃതമായി നിർമിച്ച കെട്ടിടങ്ങൾക്ക് സാധുത നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു

ഇടുക്കി ജില്ല യിൽ മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് അർഹതയെന്ന് വൃക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇത് വ്യാപകമായ ഭൂമി കൈമാറ്റത്തിനും ക്രമക്കേടുകൾക്കും ഇടയാ ക്കുമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായ പരേഡിൽ ജില്ലകളിൽ അഭിവാദ്യം സ്വീക രിക്കുന്നതിന് മന്ത്രിമാരെ ചുമതലപ്പെടുത്തി

ചന്ദ്രശേഖ രൻ കണ്ണൂരിൽ ഇ പി ജയരാജൻ വയനാട്ടിൽ കെ കെ ശൈലജ കോഴിക്കോട്ട് എ കെ ശശീന്ദ്രൻ എന്നിവർ പങ്കെടുക്കും

ടി ജലീൽ മലപ്പുറത്തും കെ കൃഷ്ണൻകുട്ടി പാലക്കാട്ടും എ സി മൊയ്തീൻ തൃശൂരും അഭിവാദ്യം സ്ഥീക രിക്കും

ഫ്രാങ്കോ മുള ക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്തതിനെ തുടന്ന് നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ തുടർന്നാണു നടപടി ഫ്രാൻസിസ്കൻ സഭയിൻ നിന്ന് പുറത്താ ക്കിയതായി കാണിച്ചാണ് കത്ത് പത്ത് ദിവസത്തിനകുപ്പസഭയിൽ നിന്ന് സ്വമേ ധയാ പുറത്തുപോകണമെന്നും എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അതിനകം പറ യണമെന്നും കത്തിൽ പറയുന്നു എന്നാൽ തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞു തീ രുമാനത്തിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അവർ പറഞ്ഞു റിസർവ് ബാങ്ക് വായ്പാ പലിശ നിരക്ക് കുറച്ചു

തുടർച്ചയായി നാലാം തവണയാണ് റിപ്പോ നിരക്കിൽ കുറവു വരുത്തുന്നത് ഇതോടെ ഭവന വാഹന വായ്പാ പലിശ നിരക്കുകൾ കുറഞ്ഞേക്കും

കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു

കാ വീട് കൊളാടിപ്പറമ്പിൽ മരം വീണ് ഏതാനും വീടുകൾക്ക് നാശം നേരിട്ടു ലിറ്റിൽ ഫ്ളവർ കോളേജ് താമരയൂർ ദേവസം കാർട്ടേഴ്സ് എന്നിവിടങ്ങളിലും നാശമുണ്ടായി ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ വൈകീട്ടും രാത്രിയും തുടർച്ചയായി പെയ്ത മഴയിൽ ജില്ലയുടെ മലയോരമേഖലകൾ വെള്ള പ്പെക്കഭീഷണിയിലാണ് ജില്ലയിൽ മൂന്ന് താലൂക്കുകളിലും കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്

പനമ്പിള്ളി നഗർ സ്പോർട്സ് അക്കാ ദമി ഗ്രൌണ്ടിൽ വൈകീട്ട് ആറിനാണ് മത്സരം

സി ടീമിനെ പ്രഖ്യാപിച്ചു

നാളെ ചെന്നൈയിൻ എഫ് സിക്കെതി രെയാണ് ഗോകുലത്തിന്റെ ആദ്യ മത്സരം

പി സ്വതന്ത്ര വ്യാപാര കരാർ പാൽ വിപണന മേഖല യിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും സഹകരണ മേഖലയുടെയും ഇടപെടലിന് തടസ്സമാകുമെന്ന് മന്ത്രി വി

ഉൽപാദന ചെലവ് കൂടിയ കേരളത്തിൽ ക്ഷീരകർഷകരെ കരാർ പ്രതിസന്ധിയിലാക്കും സംസ്ഥാന ങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് വേണ്ട നിർദേശങ്ങൾ ഉൾപ്പെടുത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു

അദാലത്തുക ളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ

വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ അദാലത്തിൽ പരിഗണിക്കുമെന്ന് അധികൃതർ അറിയിച്ചു

ചിറ്റിലപ്പിള്ളി മുള്ളൂർ കായലിന് സമീപം പുലർച്ചെ യാണ് സംഭവം നിഷാദിനൊപ്പമുണ്ടായിരുന്ന ഭാര്യയ്ക്കും അക്രമികളുടെ മർദ്ദന ത്തിൽ പരിക്കേറ്റിട്ടുണ്ട്